ഇതിൽ ഒൻപത് പേർ വിദേശത്തുനിന്ന് എത്തിയ മലയാളികളും ബാക്കിയുള്ളവർ ഇവരുമായി സമ്പർക്കത്തിലേർപ്പെട്ടവരുമാണ്

തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ എട്ട് പേർ വീതവും പാലക്കാട് ആറും പത്തനംതിട്ടയിൽ അഞ്ചും ഇടുക്കിയിൽ നാലും പേർ ചികിത്സയിലുണ്ട് വയനാട് മൂന്ന് പേരും കൊല്ലത്ത് രണ്ട് പേരും ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഓരോരുത്തരുമാണ് ചികിത്സയിലുള്ളത് ദേദ കാസർകോട് മെഡിക്കൽ കോളജ് നാല് ദിവസത്തിനകം പൂർണ്ണതോതിൽ കോവിഡ് ആശുപത്രിയാക്കി മാറ്റും ഇതിന് നടപടി വേഗത്തിൽ പുരോഗമിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

ഒ ശശിധരൻ

വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്

ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രികളും അടിമാലി കട്ടപ്പന പീരുമേട് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രികളിലും ചിത്തിരപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും സ്രവ പരിശോധനയ്ക്ക് സൌകര്യമൊരുക്കിയതായി ഡി

കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

വീടുകളിൽ നിരീക്ഷണത്തിലായിരുന്ന മൂവരേയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി

ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ബ്രിട്ടീഷ് പൌരൻ രോഗമുക്തനായി ആശുപത്രി വിട്ടു രുമ ത്യശൂർ ജില്ലയിൽ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തി രോഗം സ്ഥിരീകരിച്ചയാളുടെ ഭാര്യ മകൻ എന്നിവർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്

ഇവർക്കാർക്കും രോഗ ലക്ഷണങ്ങളില്ല

രുമ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് നെഗറ്റീവായി ഒരാൾ ആശുപത്രി വിട്ടു

നിസാമുദ്ദീനിൽ തബ് ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട ആളുകളുടെ നീക്കങ്ങളാണ് രാജ്യത്ത് രോഗികളുടെ എണ്ണം വർദ്ധിക്കാനിടയായതെന്ന് ആരോഗ്യ മന്ത്രാലയ ജോയന്റ് സെക്രട്ടറി ലവ് അഗർവാൾ പറഞ്ഞു ദേദ ആവശ്യക്കാർക്ക് ആഹാരം അടക്കം അവശ്യ സാധനങ്ങൾ എത്തിച്ച് നൽകണമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര റെയിൽ മന്ത്രി പിയൂഷ് ഗോയൽ നിർദ്ദേശം നൽകി റെയിൽവേ സ്റ്റേഷനിലും അതിന്റെ പരിസരങ്ങളിലും മാത്രം ഒതുങ്ങാതെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ റെയിൽവേ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു

ഇവർക്ക് ഭക്ഷണം ഒരുക്കുന്നതിനും താമസ കേന്ദ്രങ്ങളിൽ ലോക്ഡൌൺ ഉറപ്പാക്കുന്നതിനും നടപടി സ്വീകരിക്കാൻ കാബിനറ്റ് സെക്രട്ടറി ആവശ്യപ്പെട്ടു

സ്പെയിനിൽ ഒമ്പതിനായിരത്തിലേറെപേരും യു എസിൽ അയ്യായിരത്തിലേറെ പേരുമാണ് മരിച്ചത്

രുമ കൊറോണക്കാലത്ത് ജീവനക്കാരുടെ ശമ്പളമുൾപ്പടെ പിടിച്ചെടുത്ത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഗവൺമെന്റ് വെല്ലുവിളിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ

ഹെലികോപ്ടറിനായി പ്രതിസന്ധിക്കാലത്ത് ഒന്നരക്കോടി രൂപ നൽകിയത് അംഗീകരിക്കാനാകില്ല ധൂർത്ത് അവസാനിപ്പിച്ച് സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയാണ് ധനമന്ത്രി ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു

ദേശീയപാതകളുടെ ചുമതല കേന്ദ്ര ഗവൺമെന്റിനാണെന്നും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അതിലൂടെ യാത്ര നിഷേധിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികളെ കടത്തി വിട്ടില്ലെങ്കിൽ വിലപ്പെട്ട ജീവനുകൾ നഷ്ടമാവും

വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അടിയന്തര നടപടി എടുക്കണമെന്ന് ഇടക്കാല വിധിയിൽ ഹൈക്കോടതി പറഞ്ഞു

കേന്ദ്ര മാനവശേഷി മന്ത്രാലയത്തിന്റെ നിർദേശത്തെ തുടർന്നാണ് നടപടി

ശേഷിക്കുന്നവർക്ക് ഓൺലൈൻ ഓഫ്ലൈൻ രീതികളിൽ സ്കൂൾ പരീക്ഷ എഴുതാനും അവസരം നൽകുമെന്ന് സി ബി എസ് ഇ കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു രുമ ലോക്ഡൌൺ കാരണം കൊണ്ട് മാത്രം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആരോഗ്യമേഖലയിലെ ജീവനക്കാർ അടിയന്തരമായി അതത് സ്ഥാപനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് സംസ്ഥാന ആരോഗ്യ ഡയറക്ടർ നിർദേശം നൽകി

ഗവൺമെന്റ് ജീവനക്കാർക്കായുള്ള സാലറി ചലഞ്ചിൽ പാർട്ട് ടൈം ജീവനക്കാരെയും കരാർ ജീവനക്കാരെയും ഭാഗമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇക്കാര്യം പ്രത്യേകം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രുമ തുടർ ചികിത്സ ആവശ്യമുള്ള രോഗങ്ങൾക്ക് ഹോമിയോ മരുന്നുകൾ വീട്ടിലെത്തിക്കുന്ന കരുതൽ പദ്ധതിയ്ക്ക് കൊല്ലം ജില്ലയിൽ തുടക്കമായി

എ ഇയിൽ മരിച്ച നാല് മലയാളികളുടെ മൃതദേഹം നോർക്ക കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചു ലോക്ഡൌണിനെത്തുടർന്ന് പാസഞ്ചർ വിമാനങ്ങൾ നിർത്തലാക്കിയ സാഹചര്യത്തിൽ കാർഗോ എയർലൈൻസ് വഴിയാണ് മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തിച്ചതെന്ന് നോർക്ക റൂട്ട്സ് സി

വൈകിട്ട് കലക്ടറേറ്റിൽ ചേരുന്ന യോഗത്തിൽ മന്ത്രി ജി സുധാകരൻ പങ്കെടുക്കും

എല്ലാവർക്കും അർഹതപ്പെട്ട ഭക്ഷ്യധാന്യം ലഭിക്കുമെന്നും റേഷൻകടകളിൽ തിക്കിതിരക്കേണ്ട കാര്യമില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു